തീരു മാനം ആരെയും ഭയപ്പെടുത്താന ല്ലെന്ന് മന്ത്രി കെ കെ ശൈലജ കേന്ദ്രമന്ത്രി തല സംഘം രാജ്യത്ത് കൊറോണ വൈറസ് തടയുന്ന തിന് നടത്തിയ തയാറെടുപ്പുകളും നടപട്ടികളും കേരളത്തിലെ സ്ഥിതിയും അവലോകനം ചെയ്തു വൈറസ് ബാധയ്ക്കെതിരെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സ്വീകരിക്കേണ്ട നടപടി ക്രമങ്ങൾ സംബന്ധിച്ച് മാർഗ്ഗ നിർദേശങ്ങൾ പുറപ്പെടുവിച്ചു സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉടൻ നട പടി കൈക്കൊള്ളുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ

കേരള പ്രീമിയർ ലീഗിൽ ഗോകുലം കേരള എഫ് സി സെമിയിൽ പ്രവേ ശിച്ചു

മുഖ്യമ ന്ത്രിയുടെ നിർദേശത്തെ തുടർന്ന് ചീഫ് സെക്രട്ടറി ടോംജോസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന ദുരന്ത നിവാ രണ മാനേജ്മെന്റ് അതോറിറ്റി അപെക്സ് കമ്മിറ്റി യോഗത്തിന്റെ അടി സ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുത്തതെന്ന് മന്ത്രി കെ

ഇത് ആരെയും ഭയപ്പെടുത്താനല്ലെന്നും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ മരണങ്ങളില്ലാതെ രക്ഷപ്പെടുത്താൻ ആകുമെന്നും മന്ത്രി പറഞ്ഞു

ആരോഗ്യവകുപ്പിന്റെ നിർദേശങ്ങൾ കർശനമായി പാലിക്കണ മെന്നും മന്ത്രി ആവശ്യപ്പെട്ടു

സംസ്ഥാനത്തുടനീളം ജാഗ്രത തുടരുമെന്നും തൃശൂർ കാസർകോ ട് ആലപ്പുഴ ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധയോടെ ഇടപെടൽ നടത്തുന്നു ണ്ടെന്നും മന്ത്രി പറഞ്ഞു

പ്രധാനമന്ത്രിയുടെ നിർദേശ പ്രകാരം രൂപീകരിച്ച കേന്ദ്ര മന്ത്രിതല സംഘം രാജ്യത്ത് കൊറോണ വൈറസ് തടയുന്നതിന് നടത്തിയ തയാറെടുപ്പു കളും നടപടികളും അവലോകനം ചെയ്തു മൂന്നു പേരിൽ കൊറോണ സ്ഥിരീകരിച്ച കേരളത്തിലെ സ്ഥിതിയും യോഗം വിലയിരുത്തി

ഹർഷവർധന്റെ അധ്യക്ഷത്യിൽ ന്യൂഡൽഹി യിൽ ചേർന്ന യോഗത്തിൽ വ്യോമയാന മന്ത്രി ഹർധീപ്പുരി വിദേശ കാര്യ മന്ത്രി എസ് ജയശങ്കർ ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി ആരോഗ്യ സഹമന്ത്രി അശ്ചിനി കുമാർ ചൌബെ ഷിപ്പിങ് മന്ത്രി മൻസൂഖ് ലാൽ മണ്ഡാവ്യ എന്നിവർ സംബന്ധിച്ചു

മലപ്പുറം ജില്ലയി ലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴി യുന്നത്

കൊറോണ രോഗം സ്ഥിരീകരിച്ച് തൃശൂർ മെഡിക്കൽ കോളജ് ആശുപത്രി യിൽ കഴിയുന്ന വിദ്യാർഥിനിയുടെ രണ്ട് സാമ്പിളുകൾ കൂടി പോസി റ്റീവാണെന്ന് പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരി ശോധനയിൽ കണ്ടെത്തി ഫലം നെഗറ്റീവാകുന്നത് വരെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ സാമ്പിളുകൾ പരിശോധിക്കും

കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളജിൽ മൂന്നു പേരും ബീച്ച് ആശു പത്രിയിൽ ഒരാളും നിരീക്ഷണത്തിലുണ്ട്

പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് രാവിലെ കോർപ്പറേഷൻ കൌൺസിൽ പ്രത്യേക യോഗം ചേരു ന്നുണ്ട്

ഇതിൽ രണ്ട് പേർ കണ്ണൂർ ഗവ മെഡിക്കൽ കോളേജിലും ബാക്കിയുള്ളവർ വീടുകളിലുമാണ് വയനാട് ജില്ലയിൽ വിദ്യാർഥികളുടെ പഠന യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെ ടുത്തി

കൊല്ലം ജില്ലയിൽ പ്രതിരോധ മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ കുടുംബശ്രീ പ്രവർത്തകർ ആശാ വർക്കർമാർ തുടങ്ങിയവർക്ക് ബോധ വത്കരണം നൽകി വരുന്നു

കൊറോണ വൈറസ് ബാധ ലക്ഷണങ്ങളുമായി രണ്ടുപേരെ കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചു

കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതിന് ദേശീയ അന്തർദേശിയ വിദഗ്ധരുടെ യോഗം ആരോഗൃശാസ്ത്ര സർവകലാശാലയിൽ ഇന്ന് ചേരും സംസ്ഥാനത്ത് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച് സാഹചര്യത്തിൽ തദ്ദേശസ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സ്വീകരിക്കേണ്ട നടപടി സംബ ന്ധിച്ച നിർദേശങ്ങൾ പുറപ്പെടുവിച്ചു കൊറോണ വൈറസ് തടയുന്നതിനും രോഗ ലക്ഷണം കാണിക്കുന്ന വരുടെ പൊതു സമ്പർക്കം ഒഴിവാക്കുന്നതിന് വൃക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട ബോധവത്കരണത്തിനും ജനങ്ങൾ ഒത്തുകൂടുന്ന എല്ലാ സ്ഥല ങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങൾ വിപുലമായ പ്രചാരണ പരിപാടികൾ സംഘ ടിപ്പിക്കണം ജിവനക്കാർ സന്ദർശകർ രോഗികൾ തുടങ്ങി ആരോഗ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവരും രോഗബാധാ നിയന്ത്രണ പ്രോട്ടോകോൾ പാലിക്കണം സ്വകാരൃ ആരോഗൃ സ്ഥാപനങ്ങളും ലാബു കളും കൺസൽട്ടിങ് സെന്ററുകളും ഉൾപ്പെടെ എല്ലായിടത്തും ഈ പ്രോട്ടോ കോൾ പാലിക്കുന്നുവെന്നും തദ്ദേശ സ്ഥാപനം ഉറപ്പാക്കണം കൊറോണ് ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ നിന്ന് എത്തു ന്നവരുടെയും അവരുമായി അടുത്ത് ഇടപഴകുന്നവരുടേയും പട്ടിക്ക തയാറാക്കി അവർക്ക് ആരോഗൃ വകുപ്പിന്റെ ഹോം ഐസൊലേഷൻ പ്രോട്ടോകോൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകണം രോഗം പടരുന്നത് തടയാൻ സാധന സാമഗ്രികൾ ആവശ്യമെങ്കിൽ രോഗിയുടെ കുടും ബത്തിന് വാങ്ങി നൽകണമെന്നും ഐസൊലേഷന് വിധേയമാകുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ദൈനംദിന ജീവിത സഹായം ലഭ്യമാക്കണമെന്നും നിർദേശിച്ചിട്ടുണ്ട്

സ്വകാര്യ ബസ് മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാവ ശൃമായ നടപടി ഉടൻ കൈകൊള്ളുമെന്ന് മന്ത്രി എ

ബസുകളിൽ ജി

വിദ്യാർഥി കളുടെ കൺസഷൻ കാർഡ് സംബന്ധിച്ച് പുനരാലോചന നടത്തു മെന്നും ശശീന്ദ്രൻ പറഞ്ഞു തിരുവനന്തപുരം ആക്കുളം കായലിന്റെ സമഗ്ര പുനരുജ്ജീവന പദ്ധതി ഉടൻ നടപ്പാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സൂരേന്ദ്രൻ പറഞ്ഞു

ജൈവ വൈവിധ്യ സംരക്ഷണമാണ് പ്രകൃതിയിലെ സുരക്ഷിത നിക്ഷേപം എന്നും ജൈവവൈവിധ്യ സംരക്ഷണം മാത്രമാണ് പ്രകൃതിയുടെ സന്തു ലിതാവസ്ഥ നിലനിർത്തുന്നതെന്നും ഇതിൽ കുട്ടികളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നും മന്ത്രി സി

കുട്ടികളുടെ ജൈവ വൈവിധ്യ കോൺഗ്രസിന്റെ സമാപന സമ്മേളനം തിരുവനന്തപു രത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ദക്ഷിണാഫ്രിക്കയിലെ പോചെഫ്സ്ട്രൂമിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് മത്സരം

കേരള പ്രീമിയർ ലീഗിൽ ഗോകുലം കേരള എഫ് സി സെമിയിൽ പ്രവേശിച്ചു

ഷൂട്ടിംഗ് രംഗത്ത് കേരളത്തിനും ഇന്ത്യയ്ക്കും മികച്ച സാധ്യതയുണ്ടെന്ന് മന്ത്രി ഇ

വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ കേരള ഷൂട്ടിംഗ് അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കു കയായിരുന്നു അദ്ദേഹം ഒളിംപിക്സ് ഉൾപ്പെടെ മത്സര വേദികൾ ലക്ഷ്യ മാക്കി ലോകോത്തര പരിശീലനം നൽകാൻ ഷൂട്ടിംഗ് അക്കാദമിയിൽ സൌകര്യങ്ങളുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ദക്ഷിണ നാവിക കമാൻഡ് സംഘടിപ്പിക്കുന്ന കൊച്ചി മേഖല ബോട്ട് പുള്ളിംഗ് റെഗാറ്റ ഇന്ന് എറണാകുളം ജലപാതയിൽ നടക്കും വെണ്ടു രുത്തി വിക്രാന്ത്പാലം മുതൽ നേവൽ ബേസിലെ നോർത്ത് ജെട്ടിവ രെയാണ് വെയ്ലർ ബോട്ടുകളിൽ തുഴച്ചിൽ മത്സരങ്ങൾ നടക്കുക കഴിഞ്ഞ അഞ്ചു മാസത്തിനുള്ളിൽ കൊച്ചി മെട്രോയിലെ യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയിൽ അധികമായി വർധിച്ചു

കൊച്ചി മെട്രോ തൈക്കൂടം വരെ നീട്ടിയതിനെ തുടർന്ന് യാത്ര ക്കാരുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടായതായി മെട്രോ കേന്ദ്രങ്ങൾ അറിയിച്ചു

സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടു പയ്യന്നൂരിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് കൈക്കൂലി വാങ്ങുന്നതിനിടെ കുറ്റി പ്പുറത്ത് കെ

ഇയാളെ ഇന്ന് കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും

വി വാർത്താസംഘത്തെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ കോഴിക്കോട് ജില്ലാ കമ്മറ്റി പ്രതിഷേധിച്ചു വാർത്താശേഖരിക്കാനെത്തിയവരെ കയ്യൂക്ക് കൊണ്ട് നേരിടുന്നത് സ്വതന്ത്ര്യമാധ്യമ പ്രവർത്തനത്തിന് നേരെ വെല്ലുവിളിയാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യൂണിയൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു

സ്കൂളുകൾ അംഗൻവാടികൾ ഡേ കെയർ എന്നിവ കേന്ദ്രീകരിച്ച് സൌജന്യമായാണ് ഗുളികകൾ വിതരണം ചെയ്യുന്നത്

കോട്ടയം കുറവിലങ്ങാട് മർത്തമറിയം പള്ളിയിലെ മൂന്നു നോമ്പ് ദിനാചരണത്തിന്റെ ഭാഗമായ കപ്പൽ പ്രദക്ഷിണം ഇന്ന് നടക്കും ഉച്ച കഴിഞ്ഞ് ഒരു മണിക്ക് വലിയ പള്ളിയിൽ നിന്ന് കപ്പൽ പ്രദക്ഷിണം ആരംഭിക്കും